നരേന്ദ്രമോദി സന്ദർശനം നടത്തി സൈനിക വിന്യാസത്തിന്റെ സ്ഥിതി പ്രധാനമന്ത്രി വിലയിരുത്തി

സി എം ആർ പുറത്തിറക്കൂം

പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം

വന്ദേ ഭാരത് ദൌത്യത്തിന്റെ നാലാംഘട്ടത്തിന് തുടക്കമായി

ബോളിവുഡിലെ പ്രമുഖ നൃത്ത സംവിധായിക സരോജ് ഖാൻ മുംബൈയിൽ അന്തരിച്ചു

ഇന്ത്യ ചൈന സംഘർഷത്തെ തുടർന്നുള്ള സ്ഥിതി പ്രധാനമന്ത്രി വിലയിരുത്തി ലേ യിൽ വിനൃസിച്ചിട്ടുള്ള സൈനികരുമായി അദ്ദേഹം ആശയ വിന്ദിമയം നടത്തി സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റ്റാപ്പത്ത് കരസേനാമേധാവി എം

മുൻകൂട്ടി പ്രഖ്യാപിക്കാത്തെയായിരുന്നു ശ്രീ മോദി രാവിലെ ലേയിൽ എത്തിയത്

മുന്നണിയിലെ സൈനിക വിന്യാസത്തിന്റെ സ്ഥിതി അദ്ദേഹം വിലയിരുത്തി നിയന്ത്രണ രേഖയിൽ നിലവിലെ അവസ്ഥ അദ്ദേഹം സൈനികരോട് ആരാഞ്ഞു

ഭാരത് ബയോടെക് അന്താരാഷ്ട്ര കമ്പനിയുമായി സഹകരിച്ചാണ് ഐ സി എം ആർ വാക്സിൻ വികസിപ്പിക്കുന്നത് ഈമാസം ഏഴോടെ ഔഷധത്തിന്റെ പരീക്ഷണത്തിന് തുടക്കമിടണമെന്ന് കമ്പനിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്

രോഗലക്ഷണം പ്രകടിപ്പിക്കാത്ത കോവിഡ് രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം

എന്നാൽ എച്ച് ഐ

ദ് എന്നാൽ ഇവർ അടുത്ത ഏഴ് ദിവസം സ്വയം നിരീക്ഷ്ണത്തിൽ കഴിയണമെന്നും മാർഗരേഖയിൽ നിർദ്ദേശിക്കുന്നു

ഭാരത് ബയോടെക്കിന്റെ കോവാക്സിനു ശേഷം മനുഷ്യരിൽ പരീക്ഷിക്കുന്ന രണ്ടാമത്തെ വാക്സിൻ ആണിത്

മരണനിരക്ക് ഏറ്റവും കൂടുതല്ലുള്ളൂ

ശ്രീനഗറിലെ മാൽഗാപിലാണ് ഏറ്റുമുട്ടലുണ്ടായത് മുന്ന് സൈനികർക്ക് പരി്ക്കേറ്റു്

നാലു പോലീസുകാർക്ക് പരിക്കേറ്റു

നിരവധി കേസുകളിൽ പ്രതിയായ വികാസ് ദുബെ എന്നയാളുടെ വീട് പരിശോധിക്കാനെത്തിയ പോലീസ് സംഘത്തിനു നേരേയായിരുന്നു വെടിവയ്പ് ഉണ്ടായത് പോലീസ് അമ്പേഷണം വ്യാപിപ്പിച്ചു കർശന നടപടി എടുക്കാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഡി ജി

മരിച്ച പോലീസുകാരുടെ കുടുംബത്തെ മുഖ്യമന്ത്രി ദുഖം അറിയിച്ചു

തുടർന്ന് കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു ഫലം നെഗറ്റീവായിരുന്നു

മൂന്നു തവണ ദേശീയ പുരസ്കാരം ലഭിച്ചു മൂന്നു് പൂയ്സ്സിൽ ബാലതാരമായാണ് സിനിമാരംഗത്ത് എത്തിയത് കൂ ബോളിവുഡിൽ ഒട്ടേറെ ഹിറ്റ് ഗാനങ്ങളുടെ കോറിയോഗ്ര്ഫി നിർവ്വഹിച്ചത് സരോജ് ഖാനാണ്

നൃത്ത രംഗത്തെ നൂതന പ്രസ്ഥാനമാക്കി മാറ്റിയ കലാകാരിയായിരുന്നു സരോജ്ഖാനെന്ന് ശ്രീ ജിതേന്ദർ സിംഗ് സന്ദേശത്തിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

മൊഹമ്മദ് ഇക്ബാൽ എന്നായാളെയാണ് ദേശീയ അമ്പേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തത്